ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ ബലത്തിലാണ് സഹ കരണ ബാങ്കിങ് മേഖല തകർച്ചയെ അതിജീവിച്ചതെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ

ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ബന്ധുനിയമനത്തിൽ മന്ത്രി കെ ടി ജലീൽ നേരിട്ട് ഇടപെട്ടെന്ന് യൂത്ത്ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ്

ജനസൌ ഹൃദ ഡിജിറ്റൽ പ്ലാറ്റ് ഫോം ഉൾപ്പെടെ ഒട്ടേറെ നടപടികളിലൂടെ യാണ് ഗവൺമെന്റ് ഇത് സാധ്യമാക്കിയതെന്ന് അദ്ദേഹം അറിയി ച്ചു സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ല നിക്ഷേപസ്ഥല മാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സിംഗപ്പൂരിൽ പ്രസി ദ്ധമായ ഫിൻടെക് ഫെസ്ററിവലിൽ പങ്കെടുത്ത് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം പുതിയലോകത്ത് ശക്തി നിർണയിക്കുന്നത് സാങ്കേതിക വിദ്യ യാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമ്പത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉത്സവം മാത്രമല്ല ഇതെന്നും വിശ്വാസത്തിന്റെ ആഘോഷംകൂടിയാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബാങ്ക് അക്കൌണ്ട് ഇല്ലാതെതന്നെ ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഇത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നുരാവിലെയാണ് മോദി സിംഗപ്പൂരിലെത്തിയത് മൂന്ന് ഉച്ചകോടികളിൽ അദ്ദേഹം പങ്കെടുക്കും രാവിലെ യു എസ് വൈസ് പ്രസിഡണ്ട് മൈക്ക് പെൻസുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് സഹകരണ ബാങ്കിങ് മേഖല തകരാതെ നിന്നത് ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണ ത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടായപ്പോൾ ഗവൺമെന്റ് തന്നെ ഗ്യാരണ്ടി നൽകിയത് സഹകരണ മേഖലയ്ക്ക് വലിയ ആശ്ചാസമായെന്നും മുഖ്യമന്ത്രി പറ്ഞു

ഇതിന് റിസർവ് ബാങ്കിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി അറിയി ച്ചും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു മന്ത്രി ഇ ചന്ദ്രശേഖരൻ എം

എ മാരായ എൻ എ നെല്ലിക്കുന്ന് എം രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു

രാവിലെ കോടതി നടപടികൾ തുടങ്ങുന്നതിനുമുമ്പ് ശബരി മലക്കേസിൽ റിട്ട് റിവ്യൂ ഹർജികൾ സമർപ്പിച്ച ശൈലജ വിജ യന്റെ അഭിഭാഷകനാണ് പുനപരിശോധനാഹർജികൾ നേരത്തെ കേൾക്കണമെന്നും യുവതി പ്രവേശനം അനുവദിച്ച വിധി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടത് ശബരിമല വിഷയം ചർച്ചചെയ്യാൻ നാളെ മുഖ്യമന്ത്രി വിളി ച്ചുചേർത്ത സർവകക്ഷിയോഗത്തിൽ യു

എഫ് പങ്കെടുക്കും തിരുവനന്തപുരത്ത് ചേർന്ന യു

സമാധാനം തകർക്കുന്ന ഒന്നും ശബരിമലയിൽ ഉണ്ടാ കരുതെന്നും യോഗത്തിൽ ആവശ്യപ്പെടാനും തീരുമാനിച്ചു സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിള്ള പറഞ്ഞു

സർവകക്ഷി യോഗം വിളിച്ചത് ആത്മാർഥയോടെ യാണെന്ന് മൂഖ്യമന്ത്രി തെളിയിക്കണമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റ് പിടിവാശി ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല ആവശ്യപ്പെട്ടു ഗവൺമെന്റിന് വിവേകപൂർവം പ്രവർത്തി ക്കാൻ ലഭിച്ച അവസരമാണിതെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു സുപ്രീംകോടതി വിധി അടി ച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് ചെന്നി ത്തല ചോദിച്ചു യുവതി പ്രവേശനം അനുവദിച്ച വിധിയുടെ പകർപ്പ് ലഭിക്കു ന്ന തിന് മുമ്പ് തന്നെ അത് നടപ്പാക്കാൻ ഗവൺമെന്റ് അസാധാരണ ധൃതി കാണിക്കുകയായിരുന്നുവെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി കഴിഞ്ഞ രണ്ടുതവണ നടതുറന്ന പ്പോഴും ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി ആർ എസ്

നാളെത്തെ സർവകക്ഷിയോഗത്തിൽ സമന്വയത്തിന്റെ പാതയുണ്ടാക്കണമെന്നതാകണം മുഖ്യ അജണ്ട യെന്നും സുഗമമായ ദർശനത്തിന് വഴിയൊരുക്കേണ്ട ഉത്തരവാ ദിത്വം ഗവൺമെന്റിനാണെന്നും പ്രതിപക്ഷനേതാവ് അഭിപ്രായപ്പെ ട്ടു മുഖ്യമന്ത്രി ശബരിമല തന്ത്രിയുമായും രാജകുടുംബാംഗങ്ങ ളുമായും നാളെ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്ത്രി കുടുംബവും പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മയും അറിയിച്ചു

സുപ്രീംകോടതി വിധി ഭക്തജനങ്ങൾക്ക് സന്തോഷകരമാണെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം പി തന്ത്രി കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി ശബരിമല വിഷയത്തിൽ കെ

സി യുടെ പിന്തുണ അറിയിക്കാനായിരുന്നു കൂടിക്കാ ഴ് ച സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായി ബന്ധുവിനെ നിയമിക്കാൻ മന്ത്രി കെടി ജലീൽ നേരിട്ട് ഇടപെട്ടുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പികെ ഫിറോസ് ആരോപിച്ചു ബന്ധുവിന് അവസരമൊരുക്കാൻ ജനറൽ മാനേജർ പദവിയുടെ അടിസ്ഥാനയോഗ്യതയിൽമാറ്റംവരുത്താൻ ആവശ്യപ്പെട്ട് മന്തി നേരിട്ട് ലെറ്റർ പാഡിൽ ഉത്തരവ് നൽകിയതായി അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ഇതിൽ സാമൂഹ്യ നീതി വകുപ്പ് സെക്രട്ടറി സംശയം പ്രകടിപ്പിച്ചെങ്കിലും മന്ത്രി അത് അവഗണിക്കുകയും അധിക യോഗ്യതയെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറുകയുമായിരുന്നു ഈ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചിട്ടുണ്ട്

ഒരു പാർട്ടിയിൽ പോലും അംഗത്വമില്ലാത്ത കെടി ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനാണെ ന്നും പികെ ഫിറോസ് ചോദിച്ചു കെടി അദീപ് രാജിവെച്ചതുകൊണ്ട് ബന്ധു നിയമന വിവാദം അവസാനിക്കില്ലെന്നും കെ ടി ജലീൽ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു

സ്വാതന്ത്ര്യ സമരകാലത്തും പ്രധാനമന്ത്രിയായിരുന്ന കാലയ ളവിലും ജവഹർലാൽ നെഹ്റു നൽകിയ സംഭാവനകൾ നേതാ ക്കൾ അനുസ്മരിച്ചു ന്യൂഡൽഹിയിൽ ആകാശത്തേക്ക് ത്രിവർണ്ണ ബലൂണുകൾ പറത്തിയും സംഘഗാനങ്ങൾ ആലപിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിച്ചു ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയ ഇട പാട് കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചു വിമാനങ്ങളുടെ വിലയെ പ്പറ്റി മുദ്രവെച്ച കവറിൽ കേന്ദ്രഗവൺമെന്റ് നൽകിയ വിശദാംശ ങ്ങൾ മൂന്നംഗ ബെഞ്ച് ഇന്ന് പരിശോധിച്ചേക്കും അഭിഭാഷക രായ പ്രശാന്ത് ഭൂഷൺ മനോഹർലാൽ ശർമ്മ വിന്നെറ്റ് ധണ്ഡ എന്നിവർക്കുപുറമെ മുൻകേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ അരുൺഷൂ റി തുടങ്ങിയവരാണ് റഫേൽ ഇടപാടിനെതിരെ സംയുക്തഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്ക് പുറമെ ജഡ്ജിമാരായ എസ്

കൌൾ കെ എം ജോസഫ് എന്നിവർ ഡിവിഷൻ ബെഞ്ചി ലുണ്ട്

ഐഎസ്ആർഒയുടെഈ വർഷത്തെ അഞ്ചാമത്തെ വിക്ഷേപണമാണിത് അതേസമയം കിഴക്കൻ ആന്ധ്ര തമിഴ്നാട് തീരങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റിന് സാധ്യത യുണ്ടെന്ന പ്രവചനം വിക്ഷേപണത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് ജമ്മുകശ്മീരിൽ വീരമൃത്യുവരിച്ച സൈനികൻ ആന്റണി സെബാസ്റ്റ്യന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു രാവിലെ നെടു മ്പാശ്ശേരി വിമാനത്താവളത്തിൽ എം

എ മാരായ അൻവർ സാദത്ത് റോജി എം ജോൺ എന്നിവരും ജില്ലാകലക്ടർ മുഹ മ്മദ് വൈ സഫീറുള്ളയും മുൻസൈനികരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി സൈനിക അകമ്പടിയോടെ ഉദയംപേരൂരിലെ സെബാ സ്റ്റ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി

തിങ്കളാഴ്ച വൈകിട്ട് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം നടത്തിയ വെടിവെയ്പ്പിലാണ് എറണാകുളം ഉദയം പേരൂർ മനക്കുന്ന് സ്വദേശി ലാൻസ് നായിക് ആന്റണി സെബാ സ്റ്റ്യൻ വീരമൃത്യുവരിച്ചത് കോഴിക്കോട് ബേപ്പൂർ പോർട്ട് മലാപ്പറമ്പ് നാലുവരിപ്പാതക്ക് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻെറ ഉന്നതതലസമിതി അംഗീകാരം നൽകി കേന്ദ്ര ഗവൺമെൻറ് ഭാരത്മാല പരിയോജനയിൽ പ്പെടുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് സ്ഥലമേറ്റെടുപ്പ് അടക്കം പ്രാരംഭ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പൂർത്തിയാക്കുന്നത് അനുസരിച്ച് പദ്ധതിയുടെ ഡിപിആർ തയ്യാറാക്കലും ടെൻഡറിംഗും നടക്കുമെന്ന് എംകെ രാഘവൻ എംപി കോഴിക്കോട്ട് അറിയിച്ചു

തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ തിരുവിതാംകൂർ രാജകുടുംബ പ്രതിനിധികൾ നൽകിയ ഹരജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

ക്ഷേത്രത്തിൻറെ ഭരണവുമായി ബന്ധപ്പെട്ട ശാശ്വതപരിഹാരം നിയമനിർമാണമാണെന്ന് സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്

ഐ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് സമാപിക്കും

ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊലീസ് അറിയിച്ചു ബസ്സുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും ഗതാഗത തിരക്കനുസരിച്ച് ക്രമീകരണം ഏർപ്പെ ടുത്തും ഇന്നലെ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരൻ കണ്ണൂരിലെ പറശ്ശിനി കുഞ്ഞിരാമൻ നായരുടെ മൃതദേഹം ഇന്ന് രാവിലെ കണി ച്ചേരി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു രാവിലെ എട്ടുമുതൽ പറശ്ശിനിക്കടവിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാരചടങ്ങ് പ്രമുഖ കായിക പരിശീലകനും വോളിബോൾ താരവുമായ കണ്ണൂർ മട്ടന്നൂരിലെ എൻ രാജീവൻ വാഹനാപകടത്തിൽ മരിച്ചു ഇന്നലെ വൈകീട്ട് അദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു സ് കൂട്ടറുമായി കൂട്ടിയിടിച്ചാണ് അപകടം